ചർച്ചയാവാമെന്ന് കേന്ദ്രഗ്പൺമെന്റ്

പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായിവിജയൻ

നടപടികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തത്സമയ സംപ്രേക്ഷണം ചെയ്യാമെന്ന് കേന്ദ്രഗവൺമെന്റ്

റുവാണ്ട ഉഗാണ്ട ദക്ഷിണാഫ്രിക്ക രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ എന്നീ സന്ദർശനം

റുവാണ്ടയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി പ്രതിനിധി ചർച്ചയിലും പങ്കെടുക്കും റുവാണ്ട സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ

രണ്ടാം ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഗാണ്ടൻ തലസ്ഥാനമായ കമ്പാലയിൽ എത്തിച്ചേരും ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉഗാണ്ടയിൽ സന്ദർശനം നടത്തുന്നത്

ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉഗാണ്ടയിലെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത്

അംഗരാജൃങ്ങൾ തമ്മിലുള്ള സമാധാനം നിലനിർത്തുക ആരോഗൃ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതപ്പെടുത്തുക മേഖലയുടെ സമഗ്ര വികസനം സാധ്യമാക്കുക തുടങ്ങിയവയാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രധാന അജണ്ട ഉച്ചകോടിയെ തുടർന്ന് ബ്രിക്സ് രാഷ്ട്രനേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തുമെന്ന് കരുതുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഊഷ്മളമായ ബന്ധമാണ് ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രതിരോധം വ്യാപാരം കാർഷിക മേഖല സാംസ്കാരികം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡസ്ക് ആകാശവാണി

നിർമ്മലാസീതാരാമൻ വ്യക്തമാക്കി എന്നാൽ കേന്ദ്രമന്ത്രി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും വിമനാങ്ങളുടെ വിലയെപ്പറ്റു പുറത്തു പറയാത്തിൽ ദുരൂഹതയുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു

രാജ്യസഭയിൽ ഇതു സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയവെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി രാജൃവർദ്ധൻ റാത്തോഡാണ് ഇക്കാരൃം അറിയിച്ചത്

ഗവൺമെന്റിന്റെ നയപരിപാടികൾ പദ്ധതികളും ക് സ്റ്റാമൂഹ്യമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണ് ഗവൺഐന്റ് ഇതുവഴി ലക്ഷ്യം വയ്ക്കുന്നതെന്നും മന്ത്രി ശ്രീകൃതമാക്കി

ക്രിമിനൽ നിയമ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു രാജ്യസഭയിൽ റ്റിഡിപി അംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് നടപടികൾ ഉച്ചവരെ നിർത്തി വച്ചു പാർലമെന്റ് നടപടികൾ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി നരേന്ദ്രമോഹൻ

വേണുഗോപാലാണ് സംസ്ഥാനത്തെ മഴക്കെടുതികൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വെള്ളപ്പൊക്കം വ്യാപക നാശനഷ്ടം വരുത്തിയതായും ജനങ്ങൾ ദൂരിത അനുഭവിക്കുകയാണെന്നും അദ്ദേഹം സംസ്ഥാനത്തെ പ്പറഞ്ഞു പ്രളയക്കെടുതികൾ ഉത്കണ്ഠ ഉളവാക്കുന്നത്താണെന്നും ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചയാവാമെന്നും പാർല്മെന്റ്റി കാര്യമന്ത്രി അനന്ത്കുമാർ വൃക്തമാക്കി

ബലാത്സംഗത്തിനുള്ളി ശിക്ഷ ഏഴുവർഷത്തിൽ നിന്ന് പത്തു വർഷമാക്കി ഉയർത്തുന്നത് ബിൽ വിഭാവീന ചെയ്യുന്നു

രാജ്യസഭയിൽ റ്റിഡിപി അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ ഉച്ചവരെ നിർത്തി വച്ചു ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ചട്ടം ചർച്ചചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് റ്റിഡിപി അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങിയത് ന്യൂസ് ഡസ്ക് ആകാശവാണി

അവരീൽ ഭൂരിഭാഗവും കുറഞ്ഞ വരുമാനക്കാരും പ്രയാസ്പ്പെട്ട് ജീവിക്കുന്നവരുമാണ് അവർക്ക് താങ്ങാനാവാത്ത വർഗ്ഗ്രന്യാണ് എയർ ഇന്ത്യ നടപ്പാക്കിയത്

വെള്ളിയാഴ്ചയാണ് പശുക്കടത്ത് ആരോപിച്ച് ഒരു സംഘം ഒരാളെ കൊലപ്പെടുത്തിയത്

തുടങ്ങാമെന്നും അറ്റോർണിജനറൽ കെ

വേണുഗോപാൽ ചീഫ് ജസ്റ്റിസ് ദീപക്മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബഞ്ചിനെ അറിയിച്ചതാണിത് സാങ്കേതികമായി ഇത് എങ്ങിനെയിരിക്കും എന്നത് സംബന്ധിച്ച് ഒന്നു മുതൽ മൂന്ന് മാസം വരെ പരീക്ഷിച്ച് നോക്കാവുന്നതുമാണ്

ഗാസിയാബാദ് വികസന ഏജൻസിയിലെ മൂന്ന് സൂപ്പർവൈസർമാരെയാണ് സസ്പെൻഡ് ചെയ്തത് മീററ്റ് ഡിവിഷണൽ കമ്മീഷണർ അനിതാ മേഷ്റാമി അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി

അനധികൃതമായി നിർമ്മിക്കുന്നുവെന്ന് കണ്ടെത്തിയ മന്ദിരങ്ങൾക്കെതിരെ അടിയന്തിര നടപടി സ്വീകരിക്കാനും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു

നിയമത്തിനാണ് കൂടുതൽ ശക്തമായി പ്പ്പാർതിയിൽ ഭേദഗതി വരുത്തിയതെന്ന് മുഖ്യമന്ത്രി നിതീഷ്കുമാർ പറഞ്ഞു പഴയ നിയമത്തിന്റെ വ്യാപകമായ ദുരുപയോഗം ശ്രദ്ധയിൽപ്പെട്ടതിനെതുടർന്നാണ് നിയമം ഭേദഗതി ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്

രാജ്യത്തെ കായിക പ്രതിഭകൾക്കായി കേന്ദ്ര കായിക മന്ത്രാലയം നടപ്പാക്കിവരുന്ന പദ്ധതിയാണിത് ഇന്ത്യൻ കായിക രംഗത്ത് നിരവധി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെന്റിന് കഴിഞ്ഞതായി കായികമന്ത്രി രാജ്യവർദ്ധൻ റാത്തോർ അഭിപ്രായപ്പെട്ടു

ഇതു സംബന്ധിച്ച് പ്രധാന പത്രങ്ങളിൽ മുഴുവൻ പേജ് വരുന്ന പരസ്യമാണ് ഗവൺമെന്റ് ഇന്ന് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ വർഷം മെയ് ൽ ശ്രീലങ്കൻ സന്ദർശന വേളയിലാണ് രാജൃത്തുടനീളം ആംബുലൻസ് സർവ്വീസുകൾ ദീർഘിപ്പിക്കാനുള്ള സഹായം നല്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തത്

എസ് ഡോളറാണ് ഇന്ത്യ ഗവൺമെന്റ് ആംബുലൻസ് പദ്ധതിയ്ക്കായി സഹായം അനുവദിച്ചത്